ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയാൻ ഇന്ത്യൻ ശിക്ഷാ നിയമം ഭേദഗതി ചെയ്യാനുള്ള സാധൃത പരിശോധിക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ്

ആലപ്പുഴയിൽ ഉവിള്ളപ്പൊക്ക ദുരിതം അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം എത്തിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം

കേരളം നിലവിൽ മൂന്നാം സ്ഥാനത്ത്

അഞ്ചു ദിവസത്തെ സന്ദർശനത്തിൽ മൂന്ന് ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ അദ്ദേഹം സന്ദർശിക്കും കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

റുവാണ്ടയുടെ കാർഷിക വ്യാവസായിക മേഖലകൾക്കുള്ള വായ്പാ സഹായവും സന്ദർശനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കും

റുവാണ്ടയിലെ ഇന്ത്യൻ സ്മൂഹവുമായി പ്രധാനമന്ത്രി സംവദിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലിയ് സെക്രട്ടറി ടി

റുവാണ്ട സന്ദർശനം പൂർത്തിയാക്കി നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഗാണ്ടയിലേയ്ക്ക് തിരിക്കും യുഗാണ്ടൻ പ്രസിഡന്റിനെ സന്ദർശിക്കുന്ന അദ്ദേഹം ഉന്നതതല കൂടിക്കാഴ്ചകൾ നടത്തും യുഗാണ്ടൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ആൾക്കൂട്ട കൊലപാതകങ്ങൾ തടയുന്നതിനായി സംസ്ഥാനങ്ങൾക്കു നടപ്പിലാക്കാവുന്ന തരത്തിൽ ഒരു നിയമം കൊണ്ടുവരുന്നതും ഗവൺമെന്റിന്റെ പരിഗണനയിലാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വൃക്തമാക്കി

പരമോന്നത കോടതിയുടെ വിധി പഠിക്കുകയാണെന്നും ഉറച്ച തീരുമാനം എടുക്കുമെന്നും ഗവൺമെന്റ് വൃത്തങ്ങൾ അറിയിച്ചു

ജെ

പ്രസിഡന്റ് അമിത്ഷാ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി മുംബൈയിലെ പാർട്ടി ആസ്ഥാനത്ത് ഒരു പൂർണ്ണ ദിവസം ചെലവഴിച്ചായിരുന്നു പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനും പൂതിയ വോട്ടർമാരെക്കുറിച്ച് ആവശ്യമായ വിവര ശേഖരണം നടത്താനും അമിത്ഷാ നിർദ്ദേശം നൽകി

സമാന സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാനും സമിതി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സ്സിംഗ് യൂ

എ അധ്യക്ഷ സോണിയാഗാന്ധി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ കോൺഗ്രസ് നിയമസഭ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത് അഞ്ചു മണിക്കൂറോളം യോഗം നീണ്ടു ലോക്സഭ തിരഞ്ഞെടുപ്പിലും ശേഷവും സമാന സ്വഭാവമുള്ള പാർട്ടികളുമായി സഖ്യമുണ്ടാക്കാൻ ശ്രീ രാഹുലിനെ ചുമതലപ്പെടുത്താൻ സമിതി ഐകൃകണ്ഠേന തീരുമാനമെടുത്തതായി പാർട്ടി വക്താവ് രൺദ്വീപ് സർങ്വാല പറഞ്ഞു

നവംബർ മാസത്തിൽ ഇത് നിലവിൽ വരും

നഗരങ്ങൾ ്ര ചെറുപട്ടണങ്ങൾ ഗ്രാമങ്ങൾ എന്നിവ മാലിന്യ മുക്തമാക്കുകയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം

അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് തകർന്നുവീണതെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് റിതു മഹേശ്വരി പറഞ്ഞു സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിട്ടു

എച്ച്

കളക്ട്രേറ്റിൽ ദൂരിതാശ്ചാസ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വിളിച്ച ജില്ലാതല ഉദ്യോഗസഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

പൊതുസ്ഥലങ്ങളിൽ നിന്ന് ആവശ്യമെങ്കിൽ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കണം വൈദ്യുതി തടസം മൂലം കൂടിവെള്ള പമ്പിങ്ങും വിതരണവും തടസപ്പെടാതിരിക്കാൻ ജനറേറ്റർ ഉൾപ്പടെയുള്ള പക്രം സ്ംവിധാനമൊരുക്കും

കേരളത്തിൽ നിന്നു രണ്ടു സെന്ററുകളും ഉൾപ്പെട്ടിട്ടുണ്ട്

ഇന്നലെ മൂന്ന് സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവും അടക്കം ആറു മെഡലുകൾ കേരളം നേടി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്തൃക്ക് വേണ്ടി രൂപീന്ദർ പാൽസിംഗ് സുരേന്ദർ കുമാർ മൻദീപ് സിംഗ് ആകാശ് ദീപ് സിംഗ് എന്നിവരാണ് ഗോളടിച്ചത്

മണിപ്പൂരിന്റെ മധ്യനിരതാരം യുമ്നം കമല ദേവിയാണ് വനിതാ താരം

ഗ്രാസ്റൂട്ട് തല ഫുട്ബോൾ വികസനത്തിനുള്ള പുരസ്കാരം കേരള ഫുട്ബോൾ അസോസിയേഷനാണ്

രണ്ട് സ്വർണവും മൂന്ന് വെള്ളിയും ഉൾപ്പെടെയാണ് ഇത്

എസ്

എറണാകുളം തിരുവനന്തപൂരം റൂട്ടിൽ പകൽ ഓരോ മണിക്കൂറും രാത്രി രണ്ടു മണിക്കൂറും ഇടവിട്ടാണ് പരീക്ഷണ സർവീസ് നടത്തുന്നത്

ഓഗസ്റ്റ് ഒന്നുമുതൽ സ്ഥിരം സർവീസുകൾ തുടങ്ങും

തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബുധനാഴ്ചയാണ് പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിന് മുന്നോടിയായാണ് മുന്ന് ലക്ഷത്തി എഴുപത്തൊന്നായിരം സൈനികരെ മജിസ്ട്രേറ്റ് തല അധികാരങ്ങളോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചത് എന്നാൽ ഇക്കാര്യത്തിൽ പരാതി ഉണ്ടായതിനെ തുടർന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി

എൽ

പരാതിക്കാരനെ വിചാരണ നടത്താൻ അനുമതി നിഷേധിച്ചതിനെതിരെയാണ് ഇവർ കോടതിയെ സമീപിച്ചത്

അഞ്ചു ദിവസം നീണ്ടുനിന്ന മേളയിൽ ഇറാൻ പലസ്തീൻ ശ്രീലങ്ക പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ചിത്രങ്ങൾ വൻ പ്രേക്ഷക്പ്രീതി നേടി

മൂന്നുപേർക്ക് പരിക്കേറ്റു

പരിക്കേറ്റവരെ നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വളളം പൂർണമായും തകർന്നു നീണ്ടകര ഹാർബറിനു സമീപം അഴിമുഖത്തായിരുന്നു അപകടം

പുല്പുരാംപാറയിലായിരുന്നു ഇന്നലെ മൃത്സരങ്ങൾ നടന്നത്